ഉത്പാദക സംരംഭത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും ബുന്ദേൽഖണ്ഡ് അതിവേഗ പാതയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും

തസ്തികകളിലെ ഋഴിവുകൾ നികത്തുമെന്ന് കേന്ദ്ര സർക്കാർ

കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ രണ്ടു ലക്ഷം ന് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും

അമേരിക്കയും താലിബാനും കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ്

നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ന്യൂസിലന്റ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു

നൂതന സാങ്കേതിക വിദ്യ നല്ലയിനം വിത്തുകൾ കീടനാശിനികൾ സാമ്പത്തിക സഹായം തുടങ്ങിയവയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ഈ സംഘടനകൾ വിപ്ലവകൂരമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഇന്നലെ ഡൽഹിയിൽ ഹൃട്ട്നു ചടങ്ങിൽ കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിങ് തൊമർ പ്പാട്ഞു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇത് ബുന്ദേൽഖണ്ഡ് മേഖലയുടെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്

ഇവയിലെ ഏറ്റവും വലിയ ക്ലസ്റ്റർ ബുന്ദേൽഖണ്ഡിലെ ഝാൻസിയിലാണ് ഝാൻസി ചിത്രകൂട് എന്നീ ഇടങ്ങളിൽ കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയാണ് പദ്ധതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്

ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര ശർമ്മയുമായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ബ്രജ് രാജ് ശർമ്മ നട്ടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം

ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കാൻ ഇന്ന് നൃപേന്ദ്ര മിശ്ര അയോധ്യ സന്ദർശിക്കും

ചെലവുകുറഞ്ഞ മരുന്നുകളും വിശ്വാസയോഗ്യമായ ചികിത്സാ ഉപകരണങ്ങളും നൽകുന്ന ഇടമാണ് അമൃത് സ്റ്റോറുകൾ

ചാവേർ ആക്രമണം നടത്തിയ ഭീകരൻ ആദിൽ അഹമ്മദ് ദറിനെ സഹായിക്കുകയും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ

എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു

യു രാജ്യദ്രോഹ കേസിൽ കനയ്യകുമാറിനും മറ്റ് രണ്ടുപേർക്കുമെതിരെ വിചാരണ നടത്താൻ ഡൽഹി സർക്കാർ അനുമതി നൽകി

യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നപ്പോഴാണ് ക്ടേസ് ് എടുത്തത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇവർക്കെതിര്ര് ് ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്

യു കാമ്പസിൽ നടന്ന പ്രകടനത്തിനിടെ രാജ്യദ്രോഹപരമായ്ട്ട മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്നതാണ് ഇവർക്കെതിരെയുള്ളൂ കേസ്

സംസ്ഥാനതല പ്രഖ്യാപനം നടക്കുന്നതോടൊപ്പം പഞ്ചായത്തുതല ഗുണഭോക്തൃ സംഗമവും നടക്കും ലൈഫ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശസ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രി അവാർഡുകൾ നൽകും

അഫ്ഗാൻ ഗവൺമെൻും താലിബാനും കരാർ ഉടമ്പടികൾ പാലിക്കുകയാണെങ്കിൽ രാജ്യത്തെ സംഘർഷാവസ്ഥ അവസാനിക്കുമെന്നും അമേരിക്കൻ സേനയെ പൂർണ്ണമായും പിൻവലിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി

ദോഹയിൽ നടക്കുന്ന ചടങ്ങിൽ ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി പി

ഇതാദ്യമായാണ് താലിബാൻ ഉൾപ്പെടുന്ന ചടങ്ങിൽ ഇന്ത്യ പങ്കെടുക്കുന്നത്

സൌദി യു എ ഇ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക്

സൌദി വിദേശകാര്യമന്ത്രാലയമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്

മെക്സിക്കോയിലും രണ്ടുപേർക്ക് കൊറോണ ബാധ കണ്ടെത്തിയിട്ടുണ്ട്

ഐസ്ലന്റിലും ഒരാൾക്ക് വൈറസ് ബാധ കണ്ടെത്തിയിരുന്നു അതേസമയം കൊറോണ ഭീഷണിയെ തുടർന്ന് അടുത്ത മാസം സൈപ്രസിൽ നടക്കാനിരിക്കുന്ന ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കേണ്ട കായിക മത്സരങ്ങൾ ഇതേ കാരണത്താൽ മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്

ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്നലെ നടന്ന ്പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

ന്യൂസിലന്റ് മന്ത്രിമാരും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സി ഇ ഒ ആശിഷ് ചൌഹാനും ചേർന്നാണ് ഇന്നലെ ഓഹരിവിപണി തുറന്നത്

പരിക്കേറ്റ ഇഷാന്ത് ശർമ്മ്യ്ക്കു ്പക്രം ഉമേഷ് യാദവും ആർ അശ്വിനു പകരം രവീന്ദ്ര ജഗ്ഗേജിയും ടീമിലെത്തിയിട്ടുണ്ട് ന്യൂസിലന്റ് ടീമിൽ അജാസ് പട്ടേലിന്റു പകരം നീൽ വാഗ്നറും സ്ഥാനം പിടിച്ചു

ജമ്മു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ

ഐ കളും നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും നവീകരിക്കുന്നതിനും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ശ്രീ മുർമു ഉദ്യോഗസ്ഥർക്കു നിർദ്ദേശങ്ങൾ നൽകി